അതിവേഗ വൈഫൈ സംവിധാനം നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് കണ്ണൂർ വിയ്യൂർ സെൻട്രൽ ജയ്യിലുകളിൽ ഡി ജി

ഋഷിരാജ് സിങിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി മൊബൈൽ ഫോണുകളും ലഹ്രി വസ്തുക്കളും പിടിച്ചെടുത്തു

വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലാന്റിനെയും നേരിടും

രാജ്യസഭയിൽ എം

വീരേന്ദ്രകുമാറിന്റെ ചോദ്യത്തിനു മറുപടിയായി റെയിൽവേമന്ത്രി പിയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്

സർക്കാർ ഫണ്ടും കമ്പനികളുടെ സാമൂഹികപ്രതിബദ്ധതാ ഫണ്ടും ഉപയോഗിച്ചാണ് വൈ ഫൈ സേവനം ലഭ്യമാക്കുന്നത്

ജയിൽ റെയ്ഡ് കണ്ണൂർ വിയ്യൂർ സെൻട്രിൽ ജ്യിലുകളിൽ ഇന്ന് വെളുപ്പിന് നടന്ന റെയി ഡിൽ മൊബൈൽ ഫോണുകളും കഞ്ചാവും മദ്യകുപ്പികളും പിടിച്ചെ ടുത്തു കത്തി ഉൾപ്പെടെ ആയുധങ്ങളും കണ്ടെടുത്തെന്നാണ് സൂചന കണ്ണൂരിൽ ഡി ജി പി ഋഷിരാജ് സിംഗിന്റെ നേതൃത്വത്തിലാണ് അപ്രതീ ക്ഷിത പരിശോധന നടന്നത് വിയ്യൂരിൽ സിറ്റി പൊലീസ് കമ്മീഷണർ യ തീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന

രവീന്ദ്രനാഥ് ഇൻട്രോ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളെ വൈദ്യുതി സ്വയം പര്യാപ്തയിലെത്തി ക്കാൻ സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ മേൽക്കൂരകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉത്പാദനം നടത്തുന്ന പദ്ധതികൾക്ക് പൊതു വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിക്കുന്നു പദ്ധതിയുടെ സവിശേഷതയെക്കുറിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊ

രവീന്ദ്രനാഥ് ആകാശവാണിയോട്

എം സംസ്ഥാന നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് തുടങ്ങി ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെയ്യൂം മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും

ജെ

സംസ്ഥാന നേതൃത്യോഗം കണ്ണൂരിൽ തുടങ്ങി

അഖിലേന്തൃ സെക്രട്ടറി ബി

സന്തോഷ് കേരള സഹപ്രഭാരി നളിൻ കുമാർ കട്ടീൽ എം

സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻ പിള്ള കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ സംബന്ധിക്കുന്നു

പോത്താനിക്കാട് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി വീട്ടുടമയെ പൊലീസ് കസ്റ്റഡിയി ലെടുത്തു

നവീകരിച്ച സ്മാരകം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനായി തുറന്നുകൊടുത്തു

ഉച്ചയ്ക്ക് ശേഷം സൌത്ത് ആംടണിൽ നടക്കുന്ന മത്സരത്തിൽ ഇൻഡ്യ അഫ്ഗാനിസ്ഥാനെ നേരിടും

ഉത്തരമേഖല നഗരകാര്യ ജോയിന്റ് റീജിയണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആന്തൂരിൽ പരിശോധന നടത്തിയത് കോടികൾ മുടക്കൂി നിർമ്മിച്ച കൺവെഷൻ സെന്ററിന് ആന്തൂർ നഗരസഭ ല്ലൈസിൻസ് നൽകാത്തതിൽ മനം നൊന്താണ് പ്രവാസി വ്യവസായി ആത്മ്ഹത്യ ചെയ്തതെന്നാണ് ആ രോപണം

ഒരു വലിയ വള്ളവും അഞ്ച് ബോട്ടുകളാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് തീരത്തണഞ്ഞത് മരം കൊണ്ടുള്ള ബോട്ടുകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്

കല്ലട ഉടമ സുരേഷിനോട് യോഗത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് യാത്രക്കാർ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ കല്ലട ബസിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യണമെന്ന് കാണിച്ച് എറണാകുളം ആർടിഒ ഇരിങ്ങാലക്കുട ജോയിന്റ് ആർ ടി ഒയ്ക്ക് കത്തു നൽകിയിരുന്നു

മുല്ലപ്പെരിയാറിൽ പരമാവധി ജലം സംഭരിക്കാൻ ക്ലേരളം കേസുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയാറാകണമെന്ന് ത്രിഴ്നാട് മുഖ്യമന്ത്രി ആവ ശ്യപ്പെട്ടു

ചെന്നൈയിലെ വരൾച്ച സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചേർന്ന റിവ്യു മീറ്റിങിലാണ് കേരളത്തിന്റെ വാഗ്ദാനവും ചർച്ചയായത് മുല്ലപ്പെരിയാർ വിഷ യത്തിൽ കേരളം അനുകൂല നിലപാട് എടുക്കണമെന്ന് യോഗം ആ വശ്യപ്പെട്ടു

അഞ്ചു വയസിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് ആധാർ അപ്ഡേഷൻ ക്ഷേമനിധി പെൻഷനുവേണ്ടിയുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് എന്നീ സേവനങ്ങൾ ഇനി വീടുകളിൽ ലഭിക്കും ഗായത്രീപുഴ പുനരുജ്ജീവന പദ്ധതി ഹരിതകേരള മിഷനുമായി സഹകരിച്ച് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന ഗായത്രീപുഴ പുനരുജ്ജീവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ജനകീയ കൺവെൻഷൻ ഇന്ന് കൊല്ലങ്കോട്ട് നടക്കും

ബാബു എം

മണ്ണടിഞ്ഞു നീരൊഴുക്ക് തടസ്സപ്പെട്ട പുഴയെ വീണ്ടെടുക്കുന്നതിനുള്ള പദ്ധതികൾ കൺവെൻഷൻ ചർച്ച ചെയ്യും

കുന്നംകുളത്തുമ്പിന്റ് ചെരുപ്പും തുണിത്തരങ്ങളും ആയി കോട്ടയത്തേക്കു പോകൂകയായിരുന്ന ലോറിക്കാണ് തീപിടിച്ചത്